നിയമസഭ ശൈലജ കേരളത്തിൽ സമ്പൂർണ ട്രോമാ കെയർ യൂണിറ്റ് രൂപീകരണത്തിന്റെ ആദ്യഘട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉടൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി കെ

അപകിടൂങ്ങളിൽ പെടുന്നവർക്ക് സമ്പൂർണ ചികിത്സാ സൌകര്യങ്ങൾ ് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

മാലിന്യ സംസ്ക്കർണത്തിന് ആശുപത്രികളിൽ പ്രത്യേക പദ്ധതി ആരംഭിച്ചു കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു

ഐ